സുപ്രീം കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് റിപ്പോർട്ട് തേടി

ശതമാനത്തോടടുക്കുന്നു

അനുവദിച്ചു വൈകി സമർപ്പിച്ച ജി

ടി റിട്ടേണുകളിൽ ചെറുകിട നികുതി ദായകരിൽ നിന്ന് ജൂലായ് ആറ് വരെ പലിശ ഈടാക്കില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി

ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഡൽഹിയിലെ അവസ്ഥ ഭയാനകമെന്ന് പരമോന്നത കോടതി നിരീക്ഷിച്ചു

സ്വമേധയാ എടുത്ത കേസിൽ കേന്ദ്രത്തിനും ഡൽഹി പശ്ചിമബംഗാൾ മഹാരാഷ്ട്ര തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾക്കും നോട്ടീസ് അയച്ചു രോഗികളുടെ മൃതദേഹം കൈകാര്യം ചെയ്യുന്നതിൽ അനാദരവ് കാണിക്കുന്നതായും കോടതി പരാമർശിച്ചു കോവിഡ് രോഗികളുടെ മരണത്തെ കുറിച്ച് കുടുംബാംഗങ്ങളെ വിവരം അറിയിക്കുന്നതിലും ഡൽഹിയിലെ ആശുപത്രിയിൽ താല്പര്യം കാണിക്കുന്നില്ല

കോവിഡ് രോഗികളെ പരിപാലിക്കുന്ന രീതികൾ സംബ്ലിസ്കിച്ച് സ്ഥിതി പരിശോധിക്കാൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരോട്ട് കോടതി ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ നൽകുന്ന നിർദ്ദേശ്ദ്രൾ സംസ്ഥാനങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പരമ്മോക്കത് കോടതി നിർദ്ദേശിച്ചു

ന്യൂസ് ഡെസ്ക് ആക്കാശവാണി

ആകെ കൊറോണ ബാധിതരുടെ എണ്ണം മൂന്ന് ലക്ഷത്തോട് അടുക്കുന്നു

ഇന്ന് പുതുതായി ഒമ്പത് ഹോട്ട്സ്പോട്ടുകളാണുള്ളത്

മരണസംഖ്യ നാലേകാൽ ലക്ഷത്തോട് അടുക്കുന്നു

കൊറോണ ബാധയുടെ പശ്ചാത്തലത്തിൽ വിതരണ സംവിധാനം തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് തീരുമാനം ഇത് സംബന്ധിച്ച ഉത്തരവിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഒപ്പ് വച്ചു

കോവിഡ് സാഹചര്യത്തിൽ ഉത്പാദനം പ്രതികൂലമായി ബാധിച്ച ഇന്ത്യൻ കമ്പനികൾക്ക് തീരുമാനം വലിയ ആശ്വാസമാകും വിദേശ കമ്പനികൾക്ക് ഇക്കാര്യത്തിൽ പ്രതിരോധ മന്ത്രാലയത്തെ സമീപിക്കാവുന്നതാണെന്ന് ഉത്തരവിൽ വൃക്തമാക്കിയിട്ടുണ്ട്

ദിവ്യാംഗരായ വനിതകൾക്ക് വേണ്ടി ദേശീയ വനിത കമ്മീഷൻ സംഘടിപ്പിച്ച ഓൺലൈൻ ചർച്ചയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ

തൊഴിലാളിക്ൾ ഇല്ലാതെ ഒരു വ്യവസായവും നിലനിൽക്കില്ലെന്നും ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു

കേന്ദ്ര മാർഗ്ഗ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഫലപ്രദമായ പ്രതിരോധത്തിനായി രോഗസാധൃത കൂടുതലുള്ള ജനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം വീടുകളിലെ ഫലപ്രദമായ നിരീക്ഷണം കർശനമായി പാലിക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി

ചെറുകിട നികുതി ദായകരിൽ നിന്ന് വൈകി സമർപ്പിച്ച ജിഎസ്ടി റിട്ടേണുകൾക്ക് ജൂലായ് ആറ് വരെ പലിശ ഈടാക്കില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു

അഞ്ച് കോടി രൂപാ വരെ വിറ്റുവരവുള്ളവർക്കാണ് ഇത് ബാധകം

സംസ്ഥാനങ്ങൾക്കുള്ള നികുതി നഷ്ടപരിഹാരം ചർച്ച ചെയ്യാൻ അടുത്ത്മാസം പ്രത്യേക യോഗം ചേരും പാൻ മസാലയുടെ നികുതി സ്ക്ല്ബ്ന്ധിച്ച് അടുത്ത ജിഎസ്ടി കൌൺസിൽ ചർച്ച ചെയ്യുമെന്ന് ൂർഗ്രീമുതി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു

വോയ്സ് സംസ്ഥാനങ്ങൾ നഗരാധികൃതർ മെട്രോ റെയിൽ കമ്പനികൾ എന്നിവയ്ക്കാണ് കേന്ദ്രം മാർഗ്ഗരേഖ നൽകിയത് ആറ് മാസത്തേയ്ക്കുള്ള ഹ്രസ്വകാല പദ്ധതി ഒരു വർഷത്തേയ്ക്കുള്ള മധ്യകാല പദ്ധതി ഒന്ന് മുതൽ മൂന്ന് വർഷം വരെയുള്ള ദീർഘകാല പദ്ധതി എന്നിങ്ങനെ മൂന്നിന നിർദ്ദേശങ്ങളാണ് നൽകിയത് മോട്ടോർ വാഹനങ്ങളല്ലാത്ത ഗതാഗത സംവിധാനം പ്രോത്സാഹിപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് മോട്ടോറിതര വാഹനങ്ങൾ ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൌഹാർദ്ദവുമായിരിക്കുമെന്ന് ഭവന നിർമ്മാണ നഗരഗതാഗത സെക്രട്ടറി ദുർഗ്ഗാ ശങ്കർ മിശ്ര ചൂണ്ടിക്കാട്ടി നഗരവാസികളും ചെറുകിട ഇടത്തരം വരുമാനക്കാരും പൊതു ഗതാഗത്തെയാണ് കൂടുതലായി ആശ്രയിക്കുന്നത് അതേസമയം ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുള്ള ശുചീകരണ രീതികളും സാമൂഹിക അകലം പാലിക്കലും കൃത്യമായി നടപ്പാക്കണം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കർണ്ണാടക ആറ് ആന്ധ്രാ പ്രദേശ് മൂന്ന് പശ്ചിമ ബംഗാൾ രണ്ട് ഗുജറാത്ത് ഒരു ട്രെയിനുമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്

ഗോരഖ്പൂരിലെ ഹിന്ദുസ്ഥാൻ ഉർവരക് ആന്റ് രാസായൻ ബരൌണി ആന്റ് സിന്ദ്രി രാമഗുണ്ഡം ഫെർട്ടിലൈസേഴ്സ് താൽച്ചെർ ഫെർട്ടിലൈസേഴ്സ് എന്നിവയാണ് പുനരുദ്ധരിക്കുന്നത്